സിംഗപ്പൂരിൽ പതിമൂന്നാമത് പൂർവ്വേഷ്യൻ ഉച്ചകോടിയുടെ പ്ലീനറി സമ്മേളനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്ര മോദി പങ്കെടുക്കുന്നു വിവിധ ആസിയാൻ രാഷ്ട്രനേതാക്കളുമായി പ്രധാനമുന്ത്രി കൂടിക്കാഴ്ച നടത്തി

ശബരിമല യുവതീപ്രവേശന വിഷയത്തിൽ ഗവൺമെന്റ് വിളിച്ചുചേർത്ത സർവ്വകക്ഷിയോഗം തിരുവനന്തപുരത്ത് പുരോഗമിക്കുന്നു

ഏഷ്യൻ ഗെയിംസ് സ്വർണ്ണമെഡൽ ജേതാവ് ഹിമാ ദാസ് യൂണിസെഫ് ഇന്ത്യയുടെ യുവ അംബാസിഡറായി നിയമിതയായി

ഇന്ന് രാവിലെ വിവിധ ആസിയാൻ രാഷ്ട്രനേതാക്കളുമായി പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തിയിരുന്നു ആസിയാൻ രാജ്യങ്ങളുമായി ഇന്ത്യ ശക്തമായ ബന്ധം നിലനിർത്തുന്നതിൽ പ്രധാനമന്ത്രി സന്തുഷ്ടി രേഖപ്പെടുത്തി

വോയ്സ് സമുദ്രവുമായി ബന്ധപ്പെട്ട മേഖലയിൽ സൂഹകരണം വർദ്ധിപ്പിക്കുമെന്ന് ആവർത്തിച്ച് പ്രഖ്യാപ്പിച്ചു പ്രധാനമന്ത്രി ഇന്തോ പസഫിക് മേഖലയിൽ വ്യാപാര്യും നിക്ഷേപവും വർദ്ധിപ്പിക്കുമെന്നും അറിയിച്ചു

അന്താരാഷ്ട്ര കേഡറ്റ് വിനിമയ പദ്ധതിയുടെ ഭാഗമായി സിംഗപ്പൂരിൽ എത്തിയവരാണ് ഇവർ ആദ്യ സിംഗപ്പൂർ ഇന്ത്യ ഹാക്ക്തോൺ മത്സരവിജയികൾക്ക് പ്രധാനമന്ത്രി ഉപഹാർങ്ങൾ സമ്മാനിച്ചു ഇത്തരം സംരംഭങ്ങൾ നമ്മുടെ യുവജനങ്ങൾക്ക് അവരുടെ കഴിവുകൾ തെളിയിക്കാൻ മികച്ച അവസരം ഒരുക്കുന്നതായി പ്രധാനമന്ത്രി പറഞ്ഞു

ദക്ഷിണ കിഴക്കൻ ദക്ഷിണ ഏഷ്യൻ രാജ്യങ്ങളുടെ വാർഷിക ഉച്ചകോടിയാണിത്

ന്യൂസ് ഡെസ്ക് ആകാശവാണി

അടുത്ത മൂന്ന് മുതൽ അഞ്ച് വർഷ കാലയളവിൽ രാജ്യം ഇതിൽ നിന്നും പൂർണ്ണമായും മുക്തമാകുമെന്നും ശ്രീ

നേരത്തെ മാവോയിസ്റ്റുകളുമായുള്ള പോരാട്ടത്തിൽ കൂടുതൽ സുരക്ഷാ സൈനികർ കൊല്ലപ്പെട്ടിരുന്നുവെങ്കിൽ ഇപ്പോൾ മറിച്ചാണ് സംഭവിക്കുന്നതെന്നും ആഭ്യന്തര മന്ത്രി പറഞ്ഞു അക്രമത്തിന്റെ പാത വെടിഞ്ഞ് മാവോയിസ്റ്റുകൾ കീഴടങ്ങണമെന്നും പുനരധിവാസ നയത്തിന്റെ ഭാഗമായുള്ള എല്ലാ ആനുകൂല്യങ്ങളും കീഴടങ്ങുന്നവർക്ക് ലഭ്യമാക്കുമെന്നും ശ്രീ

റാവത്ത് ഭോപ്പാലിൽ ഇന്നലെ മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സ്വതന്ത്രവും നീതിയുക്തവുമായ തെരഞ്ഞെടുപ്പ് നടത്താൻ ശ്രമിക്കുന്നതിന്റെ ഭാഗമായാണ് ഈ നട്ടപ്പടിയെന്ന് അദ്ദേഹം പറഞ്ഞു

റാപ്പത്തും തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരായ സുമ്പിൽ അറോറയും അശോക് ലാവാസയും മധ്യപ്രദേശിൽ എത്തിയത് വോട്ടെടുപ്പ് സമയത്ത് പ്പോളിംഗ് ബൂത്തുകളിൽ ദിവ്യാംഗരെ സഹായിക്കുന്നതിനായി ആളുകളെ ഏർപ്പെടുത്തുമെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ അറിയിച്ചു

ഗവർണ്ണർ ലാൽ ജി ടണ്ടൻ മുഖ്യമന്ത്രി നിതീഷ് കുമാർ എന്നിവർ അദ്ദേഹത്തെ സ്വീകരിക്കാൻ വിമാനത്താവളത്തിലെത്തിയിരുന്നു

രാജേന്ദ്ര പ്രസാദ് കേന്ദ്ര കാർഷിക സർവ്വകലാശാലയുടെ പ്രഥമ ബിരുദദാന സമ്മേളനത്തെ അദ്ദേഹം ഇന്ന് അഭിസംബോധന ചെയ്യും

ഐ

രാഷ്ട്രപതിയുടെ സന്ദർശ്നത്തോടനുബന്ധിച്ച് സംസ്ഥാനത്ത് ശക്തമായ സുരക്ഷാക്രമീക്രണങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത്

രണ്ടായിരത്തിലാണ് ബിഹാറിനെ വിഭജിച്ച് ഝാർഖണ്ഡ് രൂപീകരിച്ചത്

പ്രകൃതി വിഭവങ്ങൾ കൊണ്ടും സമ്പന്നമായ സംസ്ക്കാരങ്ങൾ കൊണ്ടും അനുഗ്രഹീതമാണ് ഝാർഖണ്ഡ് എന്നും വരും വർഷങ്ങളിൽ കൂടുതൽ പുരോഗതി നേടാൻ സംസ്ഥാനത്തിന് കഴിയട്ടെയെന്നും അദ്ദേഹം ആശംസിച്ചു

മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിലാണ് യോഗം യോഗത്തിന് ആമുഖമായി സ്ഥിതിഗതികൾ വിലയിരുത്തിയുള്ള റിപ്പോർട്ട് മുഖ്യമന്ത്രി അവതരിപ്പിച്ചു മന്ത്രിമാരും വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കളും യോഗത്തിൽ സംബന്ധിക്കുന്നുണ്ട് യോഗ തീരുമാനങ്ങൾ ഉച്ചയ്ക്കുശേഷം മുഖ്യമന്ത്രി വിശദീകരിക്കുമെന്നാണ് സൂചന

വൈകിട്ട് അഞ്ചിന് മണ്ഡലകാല തീർത്ഥാടനത്തിന് തുടക്കം കുറിച്ച് മേൽശാന്തി ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി നട തുറക്കും പുതിയ ശബരിമല മാളികപ്പുറം മേൽശാന്തിമാരുടെ സ്ഥാനാരോഹണം തന്ത്രി കണ്ഠരർ രാജീവരരുടെ കാർമ്മികത്വത്തിൽ സന്നിധാനത്ത് നടക്കും വൃശ്ചിക പുലരിയിൽ മറ്റന്നാൾ പുലർച്ചെ പുതിയ മേൽശാന്തിയാണ് നട തുറക്കുക

ടിസി ബസുകളിൽ പമ്പയിലേക്ക് പോവാൻ അനുവദിക്കുമെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് പ്റഞ്ഞു ശബരിമലയിൽ സുരക്ഷാ നടപടികൾ ശക്തമാക്കിയിട്ടുണ്ട്

ന്യൂഡൽഹിയിൽ ഇന്ത്യ അന്താരാഷ്ട്ര വ്യാപാരമേളയിൽ പ്രത്യക്ഷ നികുതി ബോർഡിന്റെ പവലിയൻ ഉദ്ഘാടനം ചെയ്തശേഷം വാർത്താലേഖകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം

കടലൂരിനും പാമ്പൻ മേഖലയ്ക്കുമിടയിൽ നാഗപട്ടണത്തിനടുത്തായാണ് ഗജ തീരം തൊടുക

തമിഴ്നാട് പുതുച്ചേരി മേഖലകളിലെ മിക്ക പ്രദേശങ്ങളിലും മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും അധികൃതർ അറിയിച്ചു ഇവിടങ്ങളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് കളക്ടർമാർ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്

വടക്കൻ കാലിഫോർണിയായിലെ ബ്യൂട്ട് കൌണി മേഖലയിൽ പെട്ടവരാണ് കാണാതായപ്രിൽ ഭൂരിഭാഗം ആളുകളും

ആഫ്രിക്കൻ യൂണിയന് കൂടുതൽ അധികാരം നൽകുന്നത് ഉൾപ്പെടെയുള്ള മാറ്റങ്ങളെക്കുറിച്ച് ഉച്ചകോടിയിൽ ചർച്ച ചെയ്യും

യുണിസെഫിന്റെ ഇന്ത്യയിലെ വിവിധ പദ്ധതികൾക്ക് ഇനി ഹിമാദാസ് നേതൃത്വം നൽകും

ആദ്യ രണ്ട് മത്സരങ്ങളിലും ജയിച്ച ഇന്ത്യയ്ക്ക് ഇന്നത്തെ മത്സരത്തിൽ ജയം ഉറപ്പാക്കാനായാൽ സെമി ഫൈനലിൽ കടക്കാം മത്സരം തോറ്റാൽ അയർലന്റ് ലോകകപ്പിൽ നിന്ന് പുറത്താകും